ഭൂമിശാസ്ത്ര സാമൂഹിക വൈവിധൃങ്ങളാണ് ഇന്ത്യയുടെ മികവിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജമ്മുകാശ്മീരിലെ ഭ്യീക്രവാദം പൂർണ്ണമായും തുടച്ചുനീക്കുന്നതിന്ാണ് ഗവൺമെന്റ് മുഖ്യ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ളാദ് ജോഷി

റിപബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിൽ എത്തിയ ആദിവാസി മേഖലയിൽ നിന്നുള്ള കലാകാരന്മാർ എൻ സി സി കേഡറ്റുകൾ എൻ

എസ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഒറ്റനൂലിൽ കോർത്തെടുത്തൊരു ഹാരമാണ് ഇന്ത്യ രാഷ്ട്രത്തോടുള്ള കർത്തവ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാനും അത് നടപ്പിലാക്കാനും അദ്ദേഹം യുവാക്കളോട് ആവശ്യപ്പെട്ടു അത്തരം ശ്രമങ്ങൾ ഇന്ത്യയെ നവീകരിക്കും

ഒരു രാഷ്ട്രം എന്നതിലുപരി മഹത്തായ പാരമ്പര്യവും ആശയവും കൂടിയാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കരുതെന്ന് പൊതുവായി ഉത്തരവിടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കരുതെന്ന് പറയാനാവില്ലെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ഡൽഹി ഷഹീൻബാഗ് അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രതിഷേധങ്ങൾ സമാധാനപരമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ പ്രത്യേകം വ്യക്തമാക്കിക്കൊണ്ട് ഹർജി നൽകാനും കോടതി ഹർജിക്കാരോട് ആവശ്യപ്പെട്ടു

ജെ

ന്യൂഡൽഹിയിലെ ഷഹീൻബാഗ് പ്രക്ഷോഭത്തെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പിന്തുണയ്ക്കുന്നതായും ബി

പൌരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് ഇരു പാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യ ഭയം ജനിപ്പിക്കുന്നതായും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കുറ്റപ്പെടുത്തി മൂന്ന് രാജ്യങ്ങളിൽ പീഡനങ്ങൾക്ക് ഇരയായ ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ പൌരത്വം ലഭിക്കുമെന്നും നിയമത്തിലൂടെ ഒരു ഇന്ത്യൻ പൌരന്റേയും പൌരത്വം നഷ്ടമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പൌരത്വ ഭേദഗതി ദേശീയ പൌരത്വ രജിസ്റ്റർ ദേശീയ ജനസംഖ്യ രജിസ്റ്റർ എന്നിവ മൂന്ന് വ്യത്യസ്ത വിഷയങ്ങളാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് അറിയാമെന്നും എന്നാൽ അവയെ കൂട്ടികുഴച്ച് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയിസ് ഞായറാഴ്ച നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥി ആയി പങ്കെടുക്കുന്നതിനാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ജയിർ മെസിയസ് ബോൾസനാരോ ഇന്ത്യയിലെത്തിയത് ന്യൂഡൽഹി പാലം എയർഫോഴ്സ് സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തിന് വിദേശകാര്യ സഹമന്തി വി

എട്ട് ബ്രസീലിയൻ മന്ത്രിമാരും നാല് പാർലമെന്റ് അംഗങ്ങളും ഉന്നതതല ഉദ്യോഗസ്ഥ സംഘവും വ്യവസായ പ്രതിനിധികളും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിക്കുന്ന ബ്രസീലിയൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകും നാളെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായും ജയിർ ബോൾസനാരോ കൂടിക്കാഴ്ച നടത്തും

കാർഷികം ഊർജ്ജം പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും ബോൾസനാരോയുടെ സന്ദർശനത്തിൽ ചർച്ച നടക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

അടുത്ത മാസം എട്ടിനാണ് വോട്ടെടുപ്പ്

ജെ പി സ്ഥാനാർത്ഥി കപിൽ മിശ്രയുടെ ട്വീറ്റ് നീക്കം ചെയ്യാൻ ടിറ്ററിനോട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇന്നലെയാണ് മിശ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ട്വീറ്റ് ചെയ്തത് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്്അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്

അതിന് ഭീകരവാദം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണമെന്നും അദ്ദേഹം കശ്മീരിൽ പറഞ്ഞു കൾമീർ സന്ദർശിക്കുന്ന പ്രത്യേക കേന്ദ്രമന്ത്രി തല സംഘത്തിലെ ആറ് മന്ത്രിമാർ ഇന്ന് ജമ്മുകശ്മീരിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു റോഡുകൾ ഓഫീസുകൾ പാലങ്ങൾ തുടങ്ങിയ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും സംഘം നിർവഹിച്ചു

രോഗം പടരുന്ന സാഹചര്യത്തിൽ ചൈനയിലെ വിവിധ നഗരങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ചൈനയെക്കൂടാതെ തായ്ലാൻഡ് കൊറിയ അമേരിക്ക വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലും കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ ഉടനെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് ലോകാരോഗ്യ ചൈനീസ് പുതുവർഷത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്

അസീർ നാഷണൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇവരുടെ നില മെച്ചപ്പെട്ടുവരുന്നതായി വിദേശകാര്യ സഹമന്ത്രി വി

കൊറോണ വൈറസ് ഭീഷണിയെത്തുടർന്ന് നിരീക്ഷണത്തിലുള്ള ഇന്ത്യൻ നഴ്സുമാരുടെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച് ജിദ്ദയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയവുമായി ആശയവിനിമയം നടത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി

മുംബൈ വിമാനത്താവളത്തിൽ എത്തിയ ഇവർ ചിഞ്ച് പൊക്കാലി കസ്തൂർബാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് കസ്തൂർബാ ആശുപത്രിയിൽ കൊറോണ്ട് ർവെറസ് നിരീക്ഷണത്തിനായി പ്രത്യേക വിഭാഗം ആരംഭിച്ചിട്ടുണ്ട്

കൊറോണ വൈറസ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ആരോഗ്യവകുപ്പ് മാർഗനിർദേശങ്ങൾ പുറത്തിറക്കി

എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് കെ

രാഹുൽ വിരാട് കോഹ്ലി എന്നിവരുടെ ഇന്നിങ്സാണ് ഇന്ത്യയ്ക്ക് ജയം സമ്മാനിച്ചത് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി യുസ്വേന്ദ്ര ചാഹൽ തുടങ്ങിയവർ ഓരോ വിക്കറ്റ് വീതം നേടി